രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു

ത ഇന്ന് ശിശുദിനം ലോക പ്രമേഹ ദിനവും ഇന്ന് ആചരിക്കുന്നു

ഗീവർഗീസ് മാർ തെയഡോഷ്യസ് ഇന്ന് സ്ഥാനമേൽക്കും

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെ പ്രമുഖർ ജനങ്ങൾക്ക് ദീപാവലി ആശംസകൾ നേർന്നു വിവിധ മതങ്ങളുടെയും ജന വിഭാഗങ്ങളുടെയും ആഘോഷ വേള ഐക്യവും സൌഹൃദവും പരസ്പര വിശ്വാസവും ശക്തിപ്പെടുത്താൻ വഴിയൊരുക്കട്ടെ എന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു പാവങ്ങളുടെയും ആലംബമില്ലാത്തവരുടെയും ഉന്നമനത്തിന് സ്വയം ദീപമായി മാറാൻ എല്ലാവരും തയ്യാറാകണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു മലിനീകരണം പരമാവധി ഒഴിവാക്കിയും പരിസ്ഥിതി സൌഹൃദപരമായും ഉത്സവവേള ആഘോഷിക്കണമെന്നും രാംനാഥ് കോവിന്ദ് ഓർമ്മിപ്പിച്ചു തിന്മയുടെ ശക്തികളെ ഇല്ലായ്മ ചെയ്യാനും സമൂഹത്തിൽ നന്മയും സൌഹൃദവും നിറയ്ക്കാനും ദീപാവലി അവസരമാവട്ടെ എന്ന് ഉപരാഷ്ട്രപതി എം

ദീപാവലി ദിനത്തിൽ നാട് കാക്കുന്ന സൈനികർക്കായി ഒരു ദീപം തെളിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഭയലേശമില്ലാതെ രാജ്യത്തെ സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുന്ന സൈനികരുടെ സുധീരമായ പ്രവർത്തനങ്ങളിൽ ആദരവും നന്ദിയും അറിയിക്കാൻ അതുവഴി സാധ്യമാകട്ടെ എന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു ഇത്തവണയും സൈനികർക്കൊപ്പമായിരിക്കും പ്രധാനമന്ത്രിയുടെ ദീപാവലി ആഘോഷം ടെടി മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേർന്നു മനുഷ്യത്വത്തിന്റെ പ്രകാശനവേളയാക്കി ദീപാവലിയെ മാറ്റാൻ സാധിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാ വേർതിരിവുകൾക്കും അതീതമായ മത സാഹോദര്യവും സമത്വവും ജനാധിപത്യമൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് ദീപാവലി ആഘോഷിക്കാമെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു ടെടി അയോധ്യയിൽ ദീപാവലിയോടനുബന്ധിച്ച് മഹാദീപോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട് രാമജന്മഭൂമി ക്ഷേത്രത്തിൽ വൈകിട്ട് സംഘടിപ്പിക്കുന്ന ആരതിയിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഗവർണർ ആനന്ദിബെൻ പട്ടേലും ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും ഒട്ടേറെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ദീപാവലി ആഘോഷങ്ങൾ ഹരിതചട്ടം പാലിച്ചായിരിക്കണമെന്ന് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഡൽഹി അടക്കം സ്ഥാനങ്ങളിൽ പടക്കങ്ങളുടെ ഉപയോഗം നിരോധിച്ചു

രെട കോവിഡ് നിയമ ലംഘനങ്ങൾ തടയുന്നതിന് പകർച്ചവ്യാധി നിയന്ത്രണ ഓർഡിനൻസിൽ ഭേദഗതി വരുത്തി

വിവാഹ ചടങ്ങുകൾ മരണാനന്തര ചടങ്ങുകൾ എന്നിവയിൽ കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചാലും വർദ്ധിച്ച തുക പിഴ നൽകേണ്ടി വരും

ബീച്ചുകളിൽ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാതെ ആളുകളെത്തുന്നത് രോഗ വ്യാപനത്തിന് ഇടയാക്കുമെന്ന് കാണിച്ച് ലഭിച്ച റിപ്പോർട്ടിനെത്തുടർന്നാണ് നടപടി ടെട ഇന്ന് ശിശുദിനം

കോവിഡ് സാഹചര്യത്തിൽ ചടങ്ങുകൾ ഓൺലൈനിലായിരിക്കും ശിശുദിനത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സർഗ്ഗാത്മകതയുടെ അവസരങ്ങളൊരുക്കാൻ ജാലകങ്ങൾക്കപ്പുറം എന്ന പേരിൽ ഓൺലൈൻ കലാപരിപാടി സംഘടിപ്പിക്കും

സംസ്ഥാനതല ശിശുദിനാഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും

പ്രമേഹ ബാധിതർക്ക് രോഗം കൃത്യമായി നിയന്ത്രിച്ച് നല്ല ജീവിതം നയിക്കാൻ സഹായിക്കുന്നതിൽ നഴ്സുമാരുടെ പങ്കിനെക്കുറിച്ചാണ് ഇത്തവണ ദിനാചരണത്തിൽ ലോകം ചർച്ച ചെയ്യുന്നത്

പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനായി ഗവർണർക്ക് രാജി സമർപ്പിച്ചതായും അദ്ദേഹം പാറ്റ്നയിൽ പറഞ്ഞു

കശ്മീരിലെ ബരാമുള്ള കുപ്പ് വാര ബന്ദിപ്പൊര കേരൻ ഉറി മേഖലകളിലായിരുന്നു ആക്രമണമെന്ന് രാജ്യരക്ഷാ വക്താവ് കേണൽ രാജേഷ് കാലിയ പറഞ്ഞു പ്രത്യാക്രമണത്തിൽ പാക്കിസ്ഥാന് ഇന്ത്യൻ സൈന്യം ശക്തമായ തിരിച്ചടി നൽകിയതായി രാജേഷ് കാലിയ അറിയിച്ചു

ഗീവർഗീസ് മാർ തെയഡോഷ്യസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത രാവിലെ സ്ഥാനമേൽക്കും തിരുവല്ല അലക്സാണ്ടർ മാർത്തോമാ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മദ്ബഹയിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത അന്തരിച്ചതിനെത്തുടർന്നാണ് സഫ്രഗൻ മെത്രാപ്പൊലീത്തയെ പുതിയ മെത്രാനായി വാഴിക്കാൻ മലങ്കര മാർത്തോമാ സുറിയാനി സഭാ സെനഡ് തീരുമാനിച്ചത് ചടങ്ങിന്റെ ഭാഗമായ വിശുദ്ധ കുർബാനയിൽ ഡോ യൂയാകിം മാർ കൂറിലോസ് കോർ എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികനാകും

സ്ഥാനാരോഹണം ചെയ്യുന്ന ഡോ ഗീവർഗീസ് മാർ തെയഡോഷ്യസ് തിരുമേനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസകൾ നേർന്നു മലങ്കര മാർത്തോമാ സുറിയാനി സഭയെ കാലോചിതമായി നയിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെയെന്ന് ആശംസാ സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ടെട സംസ്ഥാന സഹകരണ വാരാഘോഷം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും

ടെട കൂറുമാറ്റ നിരോധന നിയമപ്രകാരം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയ തദ്ദേശ സ്ഥാപന അംഗങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പേര് വിവരങ്ങൾ ചേർത്തിട്ടുണ്ട് ഉത്തരവ് തീയതി മുതൽ ആറ് വർഷത്തേക്കാണ് അയോഗ്യത

രണ്ട് കക്ഷിരഹിതരും ഇടത് സ്ഥാനാർത്ഥികളായി മത്സരിക്കും

രുദ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു